പ്രചോദിപ്പിക്കുന്നതിന് ഐ

പാകിസ്ഥാൻ ശ്രമിക്കുന്നതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ

എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്

ആർ ഒ ആയിരക്കണക്കിന് യുവജനങ്ങളെ പ്രചോദിപ്പിച്ച് ശാസ്ത്രമേഖലയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ആർ ഒ യുടെ വിജയമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിക്കളുട്ടു ട്വീറ്റുകൾക്ക് നൽകിയ മറുപടിയിലാണ് പ്രധാനമന്ത്രി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്

ആർ ഒ ക്കും സ്പോർട്സ് വൃക്തികൾക്കും പഠനമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി

ഇ സ്പെയ്സ് ഏജൻസി ഡയറക്ടർ ജനറൽ ഡോ

ചാന്ദ്രയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയ ഐ

ആർ ഒയെ അഭിനന്ദിക്കുകയാണെന്ന് സൌത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യ അസിസ്റ്റന്റ് സെക്രട്ടറി ആലീസ് ജി വെൽസ് ട്വീറ്റ് ചെയ്തു

വാർധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമജീവിതം നിയിച്ചു വരികയായിരുന്നു അദ്ദേഹം റാം ജഠ്മലാനിയുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക്

ആറ് ഏഴ് ലോക്സഭകളിൽ ബിജെപിയെ പ്രതിനിധീകരിച്ച് അംഗമായി നിലവിൽ ആർജെഡിയുടെ രാജ്യസഭാ അംഗമാണ് അദ്ദേഹം

ശിവസേന ജനസംഘ് പിന്തുണയോടെയും ജനതാ പാർട്ടിയുടെ ടിക്കറ്റിലും പാർലമെന്റിലെത്തി രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന അഭിഭാഷനായിരുന്നു ഇന്ദിര ഗാന്ധി രാജീവ് ഗാന്ധി വധക്കേസുകളിൽ പ്രതികളുടെ അഭിഭാഷകനായും അദ്ദേഹം ശ്രദ്ധ നേടി കള്ളക്കടത്തുകാരുടെയും കേസുകൾ ഏറ്റെടുത്ത് റാം ജഠ്മലാനിയെ വിവാദ പുരുഷനാക്കി ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ അധ്യക്ഷനായും രാജ്യാന്തര ബാർ അസോസിയേഷൻ അംഗമായും പ്രവർത്തിച്ചു ന്യൂസ് ഡസ്ക് ആകാശവാണി

ജമ്മുകാശ്മീരിൽ കലാപം ഉണ്ടാക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ അവരുടെ നിരാശയുടെ പ്രതിഫലനമാണ് താഴ്വരയിലെ സ്ഥിതിഗതി പ്രതീക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ടതായും ശ്രീ

രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ യോഗത്തിൽ ചർച്ചു ചെയ്യും

ഹൈദരാബാദ് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ്ജസ്റ്റിസ് രാഘവേന്ദ്ര സിങ് ചൌഹാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു

ചന്ദ്രശേഖർറാവു ആഭ്യന്തരസഹമന്ത്രി കിഷൻ റെഡി മന്ത്രിമാർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു

റോഹ്തക്കിലെ പാർപ്പിട സമുച്ചയം ദുൽഹേരയിലെ ഡിസ്റ്റിബ്യൂട്ടറി ഫറീദാബാദിലെ ഇന്റഗ്രേറ്റഡ് കമ്മാൻഡ് ആന്റ് കൺട്രോൾ സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവ്വഹിക്കും

കുടിവെള്ളം കൊണ്ടു വരാൻ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതി കൊണ്ടുവരുന്നതെന്നും ശ്രീ

നിയമം ലംഘിക്കുന്നവർ മാത്രമാണ് പിഴ ഒടുക്കേണ്ടിവരുന്നതെന്നും നാഗ്പൂരിൽ പൊതു പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ റോഡ് സുരക്ഷാ നിയമങ്ങൾ ഗൌരവമായി എടുക്കുന്നില്ലെന്നും ചെറിയതുക പിഴ നൽകി രക്ഷപ്പെടാറുണ്ടെന്നും കർശന നിയമങ്ങൾ ഉണ്ടാകുന്നതുവരെ ഈ മനോഭാവം അവസാനിക്കില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

മൂരുവൽക്കരണം സംബന്ധിച്ച് യു എൻ ന്യൂ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന കൺവെൻഷനിലാണ് ഗവേഷകർ ഈ മുന്നറിയിപ്പ് നൽകിയത്ത് പ്രോയ്സ് മരുവൽക്കരണം തുടന്നാൽ മുന്നോ നാലോ പക്ഷി ജന്തുജാലങ്ങൾ ഇന്ത്യയിൽ നിന്നും എണ്ണെന്നേക്കുമായി മറയുമെന്ന് ഗവേഷകർ പറയുന്നു കഴിഞ്ഞ വർഷത്തിനിടെ ഇന്ത്യയിലും സമീപ രാജ്യങ്ങളിലും നടത്തിയ കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനം

ചീറ്റ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ചുവന്ന തലയൻ താറാവ് എന്നിവ മരുവൽക്കരണം മൂലം മൺ മറഞ്ഞ വംശങ്ങളാണ് ഇനിയും നിരവധി ജീവികൾ അപ്രത്യക്ഷമാകാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യൻ സുവേളജിക്കൽ സർവേ ഡയറക്ടർ കീടനാശിനികളുടേയും കൈലാഷ് അനുനാശിനികളുടേയും അമിതമായ പ്രയോഗമാണ് ഹരിതാഭമായ ഭൂമിയെ മറുഭൂമിയാക്കുന്നത്

കൃഷിഭൂമിയുടെ നാശവും ഇന്ത്യ നേരിടുന്ന മറ്റൊരു ഭീഷണിയാണെന്ന് ഇന്ത്യൻ സുവോളജിക്കൽ സർവേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

ചമ്പ ജില്ലയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ സ്ഥാനമെന്ന് ഷ്ടിംലയിലെ കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു

ആൾന്റാശമോ മറ്റ് അപകടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്ടിറ്ററിൽ അറിയിച്ചതാണ് ഇക്കാര്യം താലിബാന്റെ മുൻനിര മേധാവികളുമായി ക്യാമ്പ് ഡേവിഡിലാണ് ട്രംപ് കൂടിക്കാഴ്ച നടത്താനിരുന്നത് കാബൂളിൽ യു എസ് സൈനികരെ താലിബാൻ കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് അമേരിക്ക ചർച്ച റദ്ദാക്കിയത്

അഞ്ച് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് ഇന്ന് രാവിലെ അദ്ദേഹം ഡൽഹിയിലെത്തിയത് ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ബുധനാഴ്ച വിദേശകാര്യമന്ത്രി ഡോ

ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്

ആർച്ച് ബിഷപ്പ് ഡ്യോക് ജോസഫ് കളത്തിപ്പറമ്പിൽ തീർത്ഥാടന പതാക ആശീർവദിക്കും തുടർന്ന് ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി ആർപ്പിക്കും

മറ്റെന്നാൾ പൂലർച്ചെ നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ഓണക്കാല പൂജകൾക്ക് തുടക്കമാകും

ഐകൃരാഷ്ട സഭയിലെ അംഗ രാഷ്ട്ര ങ്ങൾ നിരക്ഷരതയ്ക്കെതിര പോരാട്ടം തുടരാൻ കൈക്കൊണ്ട തീരമാന ത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ദിനാചരണം